വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി കച്ചവടക്കാരുമായി സംവദിക്കുന്നത്

എം സ്വനിധി ആരംഭിച്ചത്

ഇത് മൂന്നാം തവണയാണ് ഇന്ത്യ എസ് സി ഒ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഒരു പൂർണ അംഗമെന്ന നിലയിൽ പങ്കെടുക്കുന്നത്

യോഗത്തിനിടെ റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവുമായി ശ്രീ

ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ചും അന്താരാഷ്ട്ര പ്രാദേശിക തലത്തിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തും

ഊർജ്ജ് മുന്ത്രിയും അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലി പ്രസിഡന്റുമായ ശ്രീ ആർ കെ സിംഗ് ആണ് ഇന്നലെ ഉച്ചകോടിയിൽ പ്ര്ധാനമന്ത്രിയുടെ സന്ദേശം വായിച്ചത് പുനരുപയോഗ ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ ഉള്ള ചെലവ് കുറയുന്നത് ഇതിന്റെ ഉപയോഗവും വിപുലീകരണവും വർദ്ധിപ്പിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി ലോകത്ത് പ്രതിശീർഷ കാർബൺ ബഹിർഗമനം ഏറ്റവും കുറഞ്ഞ രാജ്യമാണ് ഇന്ത്യ എന്നും എങ്കിലും നാം പുനരുപയോഗ ഊർജ്ജത്തിന് ഉപയോഗം പരമാവധി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യക്തമാക്കി

പുനരുപയോഗ ഊർജ്ജത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര സോളാർ അലയൻസിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ പരിശീലനം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് പ്രിയാനമന്ത്രി പറഞ്ഞു കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മ്രന്താല്യത്തിന് കീഴിലെ അഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് പങ്കാളികളായി സോളാർ അലയൻസിൽ ചേരുമെന്ന് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു

പ്രതിരോധ മരുന്നുകളെ എതിർക്കുന്നവർ സ്വയം ഇതുസംബന്ധിച്ച് പഠനം നടത്തണമെന്നും അഞ്ചു വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വാക്സിനുകൾ ലോകത്ത് എത്രത്തോളം സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾ മനസിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തെ മരണ നിരക്ക് ഒരു ശതമാനത്തിന് താഴെ ആക്കുന്നതാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ട്ടിറ്ററീൽ പറയുന്നു

ഒരു മാസത്തിനുള്ളിൽ തന്നെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം മൂന്നിരട്ടി വർധിച്ചുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

രോഗബാധിതരുടെ എണ്ണത്തിൽ ഒമ്പത് ലക്ഷത്തോളം പേർ ചികിത്സയിലുള്ള ഇന്തൃ നിലവിൽ രണ്ടാം സ്ഥാനത്താണ്

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ റെയിൽവേ സഹമന്ത്രി സുരേഷ് സി അങ്ങാടി ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി എന്നിവർ ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ട്രെയിനിന് ഫ്ളാഗ് ഓഫ് ചെയ്തത്

കാർഷിക ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് കിസാൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്

ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ക്രേസിൽ അറസ്റ്റിലായ റിയയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ചു

രഹസൃ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ കാസി കുണ്ടിലെ ജവഹർ ടണലിൽ വച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് വാഹനത്തിൽ നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി

തിങ്കളാഴ്ച മുതലാണ് ഭാഗികമായി സർവീസ് പുനരാരംഭിച്ചത്

എ

യിൽ താമസിക്കുന്ന പ്രവ്വസ്സിക്ൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പൊതുമാപ്പ് കാലാവധി ന്റീട്ടിയിതായി യു എ ഇ അധികൃതർ അറിയിച്ചു

എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ ദേശസാൽക്കരിക്കുന്നതിന് തുല്യമാകുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ അശുതോഷ് കുംഭകോണി ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചു കോവിഡ് ചികിത്സയ്ക്ക് അമിതമായ നിരക്ക് ഈടാക്കുന്നത് തടയാൻ സർക്കാരിന് സംവിധാനമുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു